ഇച്ഛാശക്തിയും വർദ്ധിപ്പിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി

ന്യൂഡൽഹിയിൽ രാഷ്ട്രീയ സ്വച്ഛതാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ സാമൂഹ്യ ബോധത്തിലും പെരുമാറ്റത്തിലും സ്ഥായിയായ മാറ്റം വരുത്താൻ സ്വച്ച് ഭാരത് അഭിയാനിലൂടെ സാധിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു

കാർഷിക അടിസ്ഥാന സൌകര്യ നിധി വഴി ഒരുലക്ഷം കോടി രൂപ ധനസഹായം നൽകുന്ന പദ്ധതി രാവിലെ പ്രധാനമന്ത്രി വീഡിയോ കോൺറൻസിലൂടെ നിർവഹിക്കും ഒരു റിപ്പോർട്ട്

ഒരു ലക്ഷം കോടി രൂപയുടെ കാർഷിക അടിസ്ഥാന നിധിയിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്ന ഈ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകിയിരുന്നു ശീതീകരണ സംഭരണികൾ സംഭരണ കേന്ദ്രങ്ങൾ സംസ്കരണ കേന്ദ്രങ്ങൾ തുടങ്ങിയ കാർഷിക അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് ഈ തുക സഹായകരമാകും കാർഷിക ഉൽപന്നങ്ങൾക്ക് മികച്ച വില ലഭിക്കുന്നതിന് ഇത് വഴിയൊരുക്കും

ജി സി എ ചൂണ്ടിക്കാട്ടിയിരുന്ന പോരായ്മകൾ പരിഹരിച്ചിരുന്നതായി കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യം റബ്ബറിന്റെ അമിതമായ സാന്നിധ്യം തുടങ്ങിയവയാണ് ഡി ജി സി എ

വിമാനത്താവളത്തിന്റെ സുരക്ഷാ പോരായ്മകൾ സംബന്ധിച്ച് കഴിഞ്ഞ മാസം ഒടുവിൽ ഡി ജി സി എ വിമാനത്താവള ഡയറക്ടർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു എന്ന മാധ്യമ വാർത്തകളെ തുടർന്നാണ് കേന്ദ്രമന്ത്രി ട്വിറ്ററിലൂടെ ഇക്കാര്യം അറിയിച്ചത് വിമാനത്തിന്റെ ബ്ലാക് ബോക്സ് കണ്ടെത്തി പരിശോധന ആരംഭിച്ചതായും വിശദാംശങ്ങൾ ഉടൻ വെളിപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു

നിയമ വാഴ്ച വ്യവസ്ഥകളിലെ സുതാര്യത ശക്തമായ ജുഡീഷ്യറി ജനാധിപത്യ സംവിധാനം തുടങ്ങിയ പാരമ്പര്യങ്ങളുള്ള വിശ്വസ്തരായ വ്യവസായ പങ്കാളികളെ ലോകം തേടുകയാണ്

ഉയർന്ന ഗുണനിലവാരമുള്ള ഉല്പന്നങ്ങൾ ്വൻതോതിലുള്ള ഉല്പാദന വ്യവസ്ഥ ഉയർന്ന ഉല്പാദന് ക്ഷമത് സബ്സിഡിയെ ആശ്രയിക്കാത്ത സംരംഭകൃത്യൂ ്എന്നിവ ഇന്ത്യയുടെ പ്രത്യേകതകളാണെന്നു്ട് മന്ത്രി വ്യക്തമാക്കി

ഐ കോർപ്പറേഷൻ ആശുപത്രികളെ പ്രത്യേക കോവിഡ് ആശുപത്രികളാക്കി മാറ്റിയതായി കേന്ദ്ര തൊഴിൽ മന്ത്രി സന്തോഷ് കുമാർ ഗാംഗ്വർ

ഐ ആശുപത്രിയിലെ പ്ലാസ്മ ബാങ്ക് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ബംഗളൂരുവിൽ ഒരു ഫാർമസി കോളേജ് സംഘടിപ്പിച്ച വെബിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് മൂന്നു വീതം മെഡിക്കൽ ഡിവൈസ് പാർക്കുകളും ഫാർമസി പാർക്കുകളും ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് അദ്ദേഹം അറിയിച്ചു ഈ മാസത്തോടെ രാജ്യത്തെ എല്ലാ ജില്ലകളിലും ജൻ ഔഷധി കേന്ദ്രങ്ങൾ വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

മന്ത്രിസഭാംഗങ്ങൾ അടുത്തയാഴ്ചയാണ് സത്യപ്രതിജ്ഞ ചെയ്യുക കഴിഞ്ഞ ബുധനാഴ്ച നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ മഹിന്ദ രജപക്സെയുടെ പാർട്ടി സഖ്യം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടിയിരുന്നു

ഒന്നേകാൽ കോടിയോളം പേരാണ് ഇതു്വരെ രോഗമുക്തി നേടി യത്

കോവിഡ് മരണം കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ക്സിനിക്കൽ പരിപാലനം മെച്ചപ്പെടുത്തണമെന്നും കേന്ദ്രം നിർദ്ദേശിച്ചു ഒരു റിപ്പോർട്ട്

സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ ജില്ലാ നിരീക്ഷണ ഉദ്യോഗസ്ഥർ കളക്ടർമാർ മുഖ്യ മെഡിക്കൽ ഓഫീസർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു കോവിഡ് മരണ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള നിർണായക നടപടികൾ യോഗം ചർച്ച ചെയ്തു സമയബന്ധിതമായ പരിശോധന ആംബുലൻസിന്റെ ലഭ്യത സമ്പർക്ക വിലക്കിൽ കഴിയുന്നവർക്ക് ടെലഫോൺ കൺസൾട്ടേഷൻ എന്നിവ ഉറപ്പുവരുത്തണമെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കർശന നിരീക്ഷണം മരണ കാരണമാകുന്ന മറ്റ് രോഗമുള്ളവർ ഗർഭിണികൾ വയോജനങ്ങൾ കുട്ടികൾ തുടങ്ങിയവർക്ക് കർശന രോഗ നിയന്ത്രണ നടപടികൾ എന്നിവ പിന്തുടരാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി

ആകാശവാണി

ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും വെള്ളം ക്രമാതീതമായി ഉയരുന്ന പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യം കണക്കിലെടുത്ത് മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിടാൻ സാധ്യതയുണ്ട് പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണ്

നദികൾ കരകവിഞ്ഞൊഴുകിയതോടെ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലുമുണ്ടായ പ്രളയത്തിൽ രണ്ടുപേർ മരിച്ചു

തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ മൂന്നൂാമത്തെ ഷട്ടറും നെയ്യാർ ഡാമിലെ നാല് ഷട്ടറുകളും തുറന്നു

ഇന്ത്യൻ സൈന്യത്തിന്റെ ഉന്നതതല പ്രതിനിധികളും ചൈനീസ് സേനാ തലവന്മാരും തമ്മിലുള്ള അഞ്ചാംവട്ട ചർച്ചയാണ് ഇന്നലെ നടന്നത്